അവതരിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭയുടെ അനുമതി

സമാധാനം ഇന്ത്യയും ചൈനയും ഉഭയകക്ഷി കരാറുകൾ പാലിക്കുന്നുണ്ടെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്

എൽ

കൂടുതൽ വിവരങ്ങളുമാ്യി ഉദയൻ കിളിയന്നൂർ

തീരുമാനം കോടതിയെ അറിയിക്കണമെന്നും ഉത്തരവിലുണ്ട് ഭരണഘടനയ്ക്കും ലോക്പാലിനും കോടതിക്കും വിരുദ്ധമായി തീരുമാനമെടുക്കില്ലെന്ന് സ്പീക്കർ രമേഷ്കുമാർ പറഞ്ഞു വിധി ബിജെപി സ്വാഗതം ചെയ്തു

എൽ എമാരുടെ രാജി വിഷയത്തിൽ തീരുമാനം എടുക്കേണ്ട അധികാരം സ്പീക്കർക്കാണെന്ന് വൃക്തമാക്കിയ കോടതി വൈകാതെ തീരുമാനമുണ്ടാകണമെന്ന വ്യക്തമായ സൂചനയും നൽകിയിട്ടുണ്ടെന്ന് ബിജെപി ജനറൽ സെക്രട്ടറി മുരളീധർ റാവു പറഞ്ഞു

എമാരുടെ ധാർമ്മിക വിജയവുമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് ബിജെപി കർണാടക ഘടകം അദ്ധ്യക്ഷൻ ബി

യദിയൂരപ്പ പറഞ്ഞു

പാകിസ്ഥാൻ വിയന്ന ഉടമ്പടി ലംഘിച്ചെന്ന് കോടതി വിലയിരുത്തി വധശിക്ഷ പുനപരിശോധിക്കണമെന്ന് കോടതി പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടു കുൽഭൂഷൺ ജാദവിനെ മോചിപ്പിക്കണമെന്ന ഇന്ത്യയുടെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല

തുടർന്ന് ശ്രീ ജാദവിന് നയതന്ത്ര സഹായം ലഭ്യമാക്കാൻ അനുവദിക്കാത്തതിനെതിരെ ഇന്ത്യ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയെ സമീപിക്കുകയായിരുന്നു ഈ സാഹചര്യത്തിൽ വധശിക്ഷയ്ക്ക് അന്താരാഷ്ട്ര കോടതിയുടെ വിധി വരും വരെ വിലക്കേർപ്പെടുത്തി

ഇരു രാജ്യങ്ങളൂട്ടിയ്ക് വാദങ്ങൾ കേട്ട അന്താരാഷ്ട്ര നീതിന്യായ ക്കോട്ട്ത് ഇന്ന് വിധി പറയാൻ മാറ്റുകയായിരുന്നു

രാജ്യത്തെ ചില അണക്കെട്ടുകൾക്ക് പാലിക്കേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങൾ ഇതോടെ ഏകീകരിക്കപ്പെടും

കൃത്യമായ സുരക്ഷാ പരിശോധന അടിയന്തിരമായി കൈക്കൊള്ളേണ്ട നടപടികൾ സുരക്ഷ സംബന്ധിച്ച വിലയിരുത്തൽ അറ്റകുറ്റപ്പണികൾ മുതലായവയാണ് അണക്കെട്ട് സുരക്ഷാ ബിൽ ഉറപ്പാക്കുന്നത്

ബിസിനസ് നൂലാമാല്കുൾ ് ഒഴിവാക്കി കൂടുതൽ ലളിതമായി നടത്താൻ നിയമാനുസൃതമായി പ്രവീർത്തിക്കുന്ന കമ്പനികൾക്ക് ഗുണകരമായ കാര്യങ്ങളാണ് പ്രില്ലിലൂടെ ഉറപ്പാക്കുന്നത്

പോഷൻ അഭിയാൻ സംബന്ധിച്ചു ശ്രദ്ധക്ഷണിക്കലിന് രാജ്യസഭയിൽ മറുപടി പറയുകയായിരുന്നു മന്ത്രി

ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിലൂടെ പോഷകാഹാരകുറവ് പരിഹരിക്കാനാണ് ലക്ഷ്യമിട്ടത്

എങ്കിലും ആവശൃത്തിനനുസരിച്ചുള്ള ഉത്പാദ്യത്തിക് സാധൃമാകില്ലെന്നും ആഭ്യന്തര ലഭ്യതയുടെ കുറവാണ് അതിന് കാരണമെന്നും മന്ത്രി പറഞ്ഞു

കിട്ട്ക്കരി വാഹനങ്ങളുടെ യാത്ര സുഗമമാക്കുന്നതിന് ഇടനാഴികളുടെ പ്രവർത്തനം പുരോഗമിക്കുന്നതായും മന്ത്രി അറിയിച്ചു

പിയുമായ രാജൃവർദ്ധൻ സിംഗ് രാത്തോഡ്

രാത്തോഡ് ഇങ്ങനെ പറഞ്ഞത്

ദലൈലാമയുടെ ജന്മദിനമായിരുന്ന ഈ മാസം ആറിന് ചൈനീസ് പൌരന്മാർ യഥാർത്ഥ നിയന്ത്രണ രേഖ മറികടന്ന് ഇന്ത്യൻപ്രദേശത്തേക്ക് എത്തിയെന്ന് ശ്രീ

ദംചോക് മേഖലയിലാണ് ചൈനക്കാർ അതിർത്തി ലംഘിച്ചതെന്നാണ് ശ്രീ അധിർ രഞ്ജൻ ചൌധരി ആരോപണമുയർത്തിയത് ദോക്ലമിൽ ഇന്ത്യൻ ചൈനീസ് സേനകൾ നിയന്ത്രണം പാലിക്കുന്നുണ്ട് കഴിഞ്ഞ ഏപ്രിലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിംഗ്പിംഗുമായി നടന്ന ഉച്ചകോടിയിൽ പരസ്പര വിശ്വാസം വർദ്ധിപ്പിക്കാനുതകുന്ന തന്ത്രപരമായ മാർഗരേഖകളെ കുറിച്ച് ചർച്ച നടന്നിരുന്നു

സ്ഥിതിഗതികൾ ഗവണ്മെന്റ് പതിവായി വിലയിരുത്തുന്നുണ്ടെന്ന് മന്ത്രി വ്യക്തമാക്കി ന്യൂസ്ഡസ്ക് ആകാശവാണി

ഒരു ഗെയിം പിന്നിൽ നന്ന ശേഷമായിരുന്നു സിന്ധുവിന്റെ ശക്തമായ തിരിച്ചു വരവ് പുരുഷ സിംഗിൾസിൽ എട്ടാം സീഡായ ശ്രീകാന്ത് ജപ്പാന്റെ തന്നെ കെന്റ്റ നിഷിമോട്ടോയെ നേരിട്ടുളള ഗെയിമുകൾക്ക് പരാജയപ്പെടുത്തി

ഇന്ത്യൻ താരങ്ങളായ സായ് പ്രനീത് ഹോങ്കോങ് താരം വോം വിംഗ് കിയോടും എച്ച് എസ് പ്രണോയ് ചൈനീസ് താരം യുകി ഷി യോടും പരാജയപ്പെട്ടു

തലസ്ഥാനമായ ഇറ്റാനഗറിൽ ഉരുൾപ്പൊട്ടലിനെ തുടർന്ന് ഒരാൾ മണ്ണിനടിയിലായി രണ്ട് പേർക്ക് പരിക്കേറ്റു

മഴയിൽ താറുമാറായ ഗതാഗതം പുനഃസ്ഥാപിക്കാനും സേനകൾ രംഗത്തുണ്ട്

വിവിധ തലങ്ങളിലുള്ള രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടരുകയാണ്

ഒരു ലക്ഷത്തിലധികം ആൾക്കാരെ ദുരിതാശ്ചാസ ക്യാമ്പുകളിലേക്ക് മാറ്റി ബറാക് താഴ്വരയിൽ വ്യോമ നിരീക്ഷണം നടത്തിയ മുഖ്യമന്ത്രി സർബാനന്ദ സോണോവാൾ വിവിധ തദ്ദേശ ഭരണാധികാരികളുമായി കൂടിക്കാഴ്ച നടത്തി

സീതാമർഹി മധുബാനി കാട്ടിഹാർ പുർണ്യ മുസാഫർപൂർ ജില്ലകളേയും വെള്ളപ്പൊക്കം ബാധിച്ചു

ദുരിതബാധിതർക്ക് സഹായങ്ങൾ എത്തിക്കുന്നതിനുള്ള തുടരുകയാണ്

വാർത്താവിതരണ പ്രക്ഷേപണ കാര്യമന്ത്രി പ്രകാശ് ജാവ്ദേകറാണ് ന്യൂഡൽഹിയിൽ ഇക്കാര്യം അറിയിച്ചത്

തീരുമാനത്തെ ശക്തമായി പിന്തുണയ്ക്കുന്നതായി അമേരിക്കൻ ഭരണകൂടം വൃക്തമാക്കി